വൈകീട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതി വിരുദ്ധ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

വാർത്തകൾ വിശദമായി വിജിലൻസ് ബോധവൽക്കരണ വാരത്തിന് ഇന്ന് തുടക്കമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകീട്ട് ന്യൂഡൽഹിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ വിജിലൻസ് അഴിമതി വിരുദ്ധ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജാഗരൂകമായ ഇന്ത്യ സമൃദ്ധമായ ഇന്ത്യ എന്നതാണ് ഈ വർഷത്തെ വാരാചരണ പ്രമേയം സർദാർ വല്ലഭായി പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും വിജിലൻസ് ബോധവൽക്കരണ വാരാചണം സംഘടിപ്പിക്കുന്നത് ദര കെഎസ്ആർടിസി പുനരുദ്ധാരണത്തിന് പുതിയ പാക്കേജ് തയാറാക്കി വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കോവിഡ് സാഹചര്യം ഗതാഗത മേഖലയിലുണ്ടാക്കിയ പ്രതിസന്ധിയും കെഎസ്ആർടിസിയുടെ വൻ നഷ്ടവും മുൻനിർത്തിയാണ് പുതിയ പാക്കേജെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

രംഭ കോവിഡ് ഭേദമായവർക്ക് വീണ്ടും രോഗ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആയുഷ് വകുപ്പിന്റെ പങ്കാളിത്തതോടെ എല്ലാ ജില്ലകളിലും പോസ്റ്റ് കോവിഡ് ക്കിനിക്കുകൾ ഒരുക്കുമെന്ന് മന്ത്രി കെ

കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി രുര കാലിക്കറ്റ് സർവ്വകലാശാല സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തുകൾ കോവിഡ് കണ്ടെയിൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചതിനാൽ സർവ്വകലാശാലാ ഓഫീസുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടു അവശ്യ വിഭാഗങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കുറഞ്ഞ ജീവനക്കാരുമായി പ്രവർത്തിക്കും നവംബർ രണ്ടു വരെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇന്നു ചേരാനിരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിന് മാറ്റമില്ല രുര കോവിഡ് പോസിറ്റീവ് ആയവരുടെ പ്രസവ ചികിത്സക്ക് അമിത ഫീസ് ഇൌടാക്കുന്ന ആശുപത്രികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി കോവിഡ് സ്ഥിരീകരിക്കുന്ന ഗർഭിണികളെ ചികിത്സിക്കുന്ന ചില ആശുപത്രികൾ കുത്തനെ ഫീസ് ഉയർത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി കൂത്തുപറമ്പ് ലാന്റ് ട്രിബ്യൂണൽ ഓഫീസിലെ മൂന്ന് ജീവനക്കാർ കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് നവംബർ ഒന്നുവരെ ഓഫീസ് അടച്ചു

തൃശൂർ ജില്ലയിൽ ഒരാഴ്ചയായി കോവിഡ് വ്യാപനം വർധിച്ച സാഹചര്യത്തിൽ വരുന്ന ഒരാഴ്ച്ച കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കളുമായി അദ്ദേഹം ഓൺലൈൻ ചർച്ച നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാനും അറിയിച്ചിട്ടുണ്ട് രംഭ കൊവിഡ് ആത്മപരിശോധനക്കും കാലം ആത്മമോചനത്തിനും സന്ദർഭമായി കണക്കാക്കണമെന്ന് ചരിത്രകാരൻ എംജിഎസ് നാരായണൻ ആകാശവാണിയോട് പറഞ്ഞു

സംസ്ഥാന ഗവൺമെന്റ് ഏജൻസികൾക്ക് സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് തക്കാളി ഉള്ളി ഉരുളക്കിഴങ്ങ് എന്നിവ ശേഖരിക്കാൻ അനുമതി തേടി തമിഴ്നാട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രംഭ മുന്നാക്കക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണച്ചാണ് ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയത് ഇപ്പോൾ സംവരണാനുകൂല്യം ലഭിക്കുന്ന ഒരു വിഭാഗത്തിന്റേയും സംവരണത്തെ ബാധിക്കാത്ത രീതിയിലാണ് പൊതു വിഭാഗത്തിൽ നിന്ന് പത്തു ശതമാനം സംവരണം നൽകുന്നതെന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു

കൃഷി സഹകരണ തദ്ദേശ വകുപ്പുകൾ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് നവംബർ ഒന്ന് മുതൽ തറവില പ്രാബല്യത്തിൽ വരും പദ്ധതിയുടെ ഭാഗമായി സംഭരണ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും ആദ്യ സംഭരണവും ഇന്ന് നടക്കും

രും കൊല്ലം തുറമുഖത്തെ പാസഞ്ചർ കം കാർഗോ ടെർമിനലും പുതിയ ടഗ്ഗും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും

ഇതോടെ ചെറിയ വിദേശയാത്രാ കപ്പലുകൾക്ക് തുറമുഖത്ത് അടുക്കാനാകും

അപ്പീലുകളുടെ പരിഗണനയിലെ കാലതാമസം ഒഴിവാക്കാൻ ഗവൺമെന്റ് അടിയന്തര അപേക്ഷ നൽകി

രുര കുട്ടനാട്ടിലേയും പാലക്കാട്ടേയും നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇന്ന് രാവിലെ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ഷാർജയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ എട്ട് വിക്കറ്റിനാണ് പഞ്ചാബ് തോൽപ്പിച്ചത് ഇന്ന് വൈകീട്ട് ദുബായിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും